ശക്തമായ കരുതൽ നടപടികളെടുക്കണമെന്ന് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ

കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരെഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം കേരളത്തിൽ പത്രികാ സമർപ്പണം വെളളിയാഴ്ച അവസാനിക്കും

ഇന്ത്യക്കെതിരായ വനിത്യാ ്ഏകദിന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജ്യ്വും പരമ്പരയും

സി ആർ ടെസ്റ്റുകൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നാൽ കോവിശ്പ്പ്പതിരോധ നടപടികളിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് മുഖ്യമന്ത്രിമാരോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ലോകത്തെ പല രാജ്യ്ക്കുളിലും കോവിഡിന്റെ രണ്ടാം വരവിനെ അഭിമുഖീകരിക്കേണ്ടി രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും മുമ്പത്തെക്കാൾ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക പ്രകടിപ്പിച്ചു പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും പരിശോധനകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്ന നിരക്കിലും വർദ്ധന ഉണ്ടായി

ദുരന്തങ്ങളിൽ പിന്നോട്ട് പോകുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ശ്രീ

വാക്സിൻ മൈത്രി പദ്ധതി സംബന്ധിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയായിരുന്നു ആദ്ദേഹം അയൽ രാജ്യങ്ങളിൽ ആരംഭിച്ച മൈത്രി പദ്ധതി ഇസ്ലോൾ മറ്റ് രാജ്യങ്ങളിലേയ്ക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോക ക്ഷേമത്തിനായി രാജ്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ വൃക്തമാകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു

ടി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം യു ആർ

രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതു മുൻനിർത്തി നിയമവിരുദ്ധവും വിദ്ധേഷം പ്രചരിപ്പിക്കുന്നതുമായ അക്കൌണ്ടുകളാണ് തടഞ്ഞത് ആവിഷ്കാര സ്വാതന്ത്രൃത്തെ സർക്കാർ മാനിക്കുന്നുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം നടത്താനുളള അവകാശത്തെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ രവിശങ്കർ പ്രസാദ് വൃക്തമാക്കി

സ്ത്രീകളാണ് കൾസൾട്ടേഷനിൽ മുന്നിലുളളത് എല്ലാ രംഗത്തും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭൃമാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗൃ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു

മൂന്ന് മുന്നണികളിലേയും ് സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സമ്മതിദായകരെ നേരിട്ട് കണ്ട് വ്യോട്ട് അഭ്യർത്ഥിക്കാനുളള തിരക്കിലാണ്

ഡി

ഡി എഫും എൻ ഡി

ജെ

തമിഴ്നാട്ടിൽ പ്രചരണം ഊർജ്ജിതം

ജെ പി ഇന്ന് മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയായി ന്യൂസ്ഡെസ്ക് ആകാശവാണി

അസ്സമിലെ കരിംഗഞ്ചിലും പശ്ചിമബംഗാളിലെ പുരുളിയയിലും നരേന്ദ്രമോദി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും

കേരളത്തിൽ ഇടതുപക്ഷം മുഖ്യ എതിരാളിയായി കാണുന്ന കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ സഖൃത്തിലാണെന്ന് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അതേ കോൺഗ്രസുമായി പശ്ചിമബംഗാളിൽ എങ്ങനൊണ് സഖൃത്താലായെന്ന് ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ ചോദിച്ചു

സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ ഇതിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ചെന്നിത്തല പ്രസ്താവനയിൽ ആരോപിച്ചു

മൂന്നിന് സൂക്ഷ്മ പരിശോധന നടക്കും ഏപ്രിൽ അഞ്ച് വരെ പത്രിക പിൻവലിക്കാം

മൂന്നര ക്കോടിയിലധികം പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിയതായി ആരോഗ്ച് സെക്രട്ടറി പറഞ്ഞു

ലക്നൌവിൽ നടന്ന മത്സരത്തിൽ അഞ്ച് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്

ഐ എം ് നിലപാടിൽ മാറ്റമില്ലെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീത്രുറിറ്റ് ്യെച്ചൂരി വൃക്തമാക്കിയ സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായു പ്പിജ്യൻ സർക്കാർ നിലപാട് വൃക്തമാക്കണമെന്ന് ബി

ഐ എമ്മിന്റെ യഥാർത്ഥ നിലപാട് പുറത്തുവന്നിരിക്കുകയാണ് പ്രൊർട്ടിക്കും സർക്കാരിനും ഒരു നിലപാട് തന്നെയ്യാണ്ട്രേയെന്ന് ജനങ്ങൾക്കറിയണമെന്ന് കേരളത്തിലെ കോന്നിി്യിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു